നാല് സൈനികർക്ക് വീരമൃത്യു

പ്രവർത്തകർ ജില്ലാ കേന്ദ്രങ്ങളിലും വിവിധ നഗരങ്ങളിലും റോഡ് ഉപരോധിച്ചു

രാവിലെ ഇടുക്കി രാജാക്കാട്ടിൽ പ്പൊലീസും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി നേരിയ സംഘർഷമുണ്ടായി

ജില്ലയിലെമ്പാടുമായി മുപ്പത്യോളിൽ യൂത്ത് കോൺഗ്രസ്സ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുക്ട്ടപ്പനയിലും കുമളിയിലും വാഹനം തടഞ്ഞ ഇരുപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചു അടിമാലി ടൌണിൽ ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി